അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി സൈനികരുടെ ധീരതയ്ക്ക് മുന്നിൽ ശിരസ്റ്റ് കുനിക്കുന്നുവെന്ന് രാഷ്ട്രപതി

കിഴക്കൻ ലഡാക്കിൽ സംഘർഷത്തിൽ സൈനികർ വീരമൃത്യു വരിച്ചതിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടു ത്തി രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടി നല്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി അയൽക്കാരുമായുള്ള എല്ലാ വിഷയങ്ങളിലും സമ വായമുണ്ടാക്കാൻ ഇന്ത്യ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാൽ പ്രകോപിക്കപ്പെട്ടാൽ ഉചിതമായ മറുപട്ടി ് കൊടുക്കാൻ ഇന്തൃക്ക് ശേഷിയുണ്ടെന്ന് പ്രധാനമന്ത്രി അസ്ത്രിഗ്ദ്ധ്മായി വൃക്തമാക്കി

സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സൈനികരുടെ ധീരതയും തൃാഗവും രാജ്യം ഒരിക്കലും മറക്കില്ലെന്നും അവരുടെ നഷ്ടം വേദനാജനകമാ ണെന്നും ട്ടിറ്ററിൽ കുറിച്ചു രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് സൈനികരുടെ ധീരത വെളിവാക്കുന്നതെന്ന് കേന്ദ്ര ആഭൃന്തര മന്ത്രി അമിത് ഷാ ട്വീറ്റ് ചെയ്തു കരസേനയുടെ എല്ലാ റാങ്കിലും ഉള്ളവർ ഗാൽവാനിൽ ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ ധീരതയ്ക്ക് മുന്നിൽ നമിക്കുന്നതായി കരസേനാ മേധാവി എം

നർവാണെ പറഞ്ഞു

നാളെ വൈകിട്ട് അഞ്ചിനാണ് യോഗം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അദ്ധ്യക്ഷന്മാർ യോഗത്തിൽ പങ്കെടുക്കും

്ഇന്ത്യയുടെ പ്രതിഷേധം വിദേശ കാര്യ മന്ത്രി എസ്

കിഴക്കൻ ലഡാക്കിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് ഇരു വിദേശകാര്യമന്ത്രിമാരും ഇന്നലെ ടെലഫോണിൽ സംഭാഷണം നടത്തി ചൈനീസ് നീക്കം ഉഭയകക്ഷി ബന്ധങ്ങളിൽ വൻപ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അടിയന്തിരമായി തിരുത്തൽ നടപടികൾ വേണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു

സംഘർഷത്തിൽ ചൈനീസ് സൈന്യത്തിന് നിരവധി പേരെ നഷ്ടമായതായും വൻതോതിൽ നാശനഷ്ടമുണ്ടായതായും യു

സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് കരസേനാ മേധാവി എം

നർവാണെ നാവിക സേനാ മേധാവി അഡ്മിറൽ കരംബീർ സിങ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മിർഷൽ ആർ

ഏഷ്യ പസഫിക് വിഭാഗത്തിലാണ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടത്

ഇത് എട്ടാം തവണയാണ് ഇന്ത്യയ്ക്ക് രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിക്കുന്നത്

ഇന്നലെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം രണ്ടാംഘട്ട തുറക്കലിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേ ണ്ടതെന്നും രാജ്യത്തെ ജനങ്ങളുടെ ദുരൂിതം എങ്ങനെ ലഘൂകരി ക്കാനാവും എന്നതും ശ്രദ്ധിക്കേള്ട്ടിരുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് വ്യാപനം കൂടയ്ുന്നതിനുള്ള അടിസ്ഥാന മുൻകരുതലുകൾ സ്വീകരിച്ച് സ്ാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകേണ്ടതുക്കിട്ടുന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിന് ശേഷം പ്രധാനമന്ത്രി ആറ് തവണയാണ് മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്

ഗുജറാത്തിലും കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്

വിശദാംശങ്ങളുമായി തിരുച്ചിറപ്പള്ളി ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

അതേസ്യമയും സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് പരമാവധി തടയാൻ ീസർക്കാർ ജാഗ്രത പുലർത്തും ഈ ജാഗ്രതയുടെയും മുൻക്ക് രുതലിന്റെയും ഭാഗമായാണ് വിദേശ ത്തുനിന്ന് വരുന്നവർക്ക് അവർ പുറപ്പെടുന്ന രാജൃത്തുതന്നെ കോവിഡ് പരിശോധന നടത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ട തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു